കൂട്ടികൾക്കുള്ളൂ ്യേയപ്പ്ർ വസ്ത്രങ്ങൾ ബ്ലാങ്കറ്റ് സാനിറ്ററി നാപ്കിൻ അടിവസ്ത്രങ്ങൾ പ്ലീസ്റ്റോൾ ബ്ലീച്ചിംഗ് പൌഡർ ശുചീകരണ സാമഗ്രികൾ കൈയ്യുറകൾ വിവിധ പ്രായക്കാർക്കുള്ള വസ്ത്രങ്ങൾ ടൌവ്വൽ സോപ്പ് തുടങ്ങീയ്ക്ക്സാമഗ്രികൾ ആവശ്യമുണ്ട്

തകർന്ന റോഡുകൾ തദ്ദേശസ്ഥാപനങ്ങൾ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി ദുരിതാശ്ചാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധം പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവരുടെ സംസ്ക്കാരം ഉചിതമായ രീതിയിൽ നടത്തുന്നതിന് സഹായം ആവശ്യമുണ്ടെങ്കിൽ തദ്ദേശസ്ഥാപനങ്ങൾ റവന്യു അധികൃതരുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കണം

ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ് നായിഡു ഗവർണർ പി സദാശിവം മുഖ്യമന്ത്രി പിണറായി വീജ്യൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ ബക്രീദ് ആശംസ്കൾ നേർന്നു